ശിവസേന എൻസിപി കോൺഗ്രസ് സഖ്യം എംഎൽഎമാർ മുംബൈയിൽ യോഗം ചേർന്ന് പാർട്ടിക്കൊപ്പം നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു ഇന്ന് ഭരണഘടനാ ദിനം

പ്രതിപക്ഷം ബഹിഷ്ക്കരിച്ചേക്കും

ള ൽ ൾ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നവിസ് മന്ത്രിസഭ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നത് സംബന്ധിച്ച് സൂപ്രീം കോടതി ഇന്ന് വിധി പറയും

ജസ്റ്റിസുമാരായ എൻ

രമണ അശോക് ഭൂഷൺ സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറയുന്നത് ശനിയാഴ്ച്ച വൈകീട്ട് സമർപ്പിച്ച ഹർജിയിൽ ഞായറാഴ്ച്ച പ്രത്യേക വാദം കേട്ട കോടതി ഇന്നലെയും വാദം കേട്ട ശേഷമാണ് ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റിയത് അതിനിടെ ശിവസേന എൻസിപ്പി കോൺഗ്രസ് സഖ്യം എംഎൽഎമാരെ മുംബൈയിലെ ഒരു ഹോട്ടലിൽ അണിനിരത്തി

പാർട്ടിയോട് സത്യസന്ധത പുലർത്തുമെന്നും ബിജെപിയുടെ നേട്ട ത്തിനായി ഒന്നും ചെയ്യില്ലെന്നും പാർട്ടിക്കെതിരെ പ്രവർത്തിക്കി ല്ലെന്നും എംഎൽഎമാർ പ്രതിജ്ഞയെടുത്തു സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത എൻസിപി അധ്യക്ഷൻ ശരത്പവാർ പറഞ്ഞു ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ കോൺഗ്രസ് നേതാവ് അശോക് ചവാൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ഇന്ന് ഭരണഘടനാ ദിനം

ലോക്സഭയുടേയും രാജ്യസഭയുടേയും സംയുക്ത പ്രത്യേക സമ്മേളനം പാർലമെന്റ് സെന്റിനറി ഹാളിൽ ചേരും സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാന മന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ നേതാക്കൾ അഭിസംബോധനം ചെയ്യും ഭരണഘടനാ ദിനം സംവിധാൻ ദിവസ് എന്ന പേരിലും അറിയ പ്പെടുന്നുണ്ട്

അതേസമയം ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ചേരുന്ന പാർല മെന്റ് സംയുക്ത സമ്മേളനം കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടി കൾ ബഹിഷ്ക്കരിച്ചേക്കും മഹാരാഷ്ട്രയിലും രാജൃത്തിന്റെ ഇതര ഭാഗങ്ങളിലും ഭരണഘടനാ വ്യവസ്ഥകൾ ഗവൺമെന്റ് ലംഘിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ബഹി ഷ്ക്കരണം ഇതുസംബന്ധിച്ച അന്തിമ തീരുമാനം രാവിലെ ചേരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത യോഗം കൈക്കൊള്ളും രാവിലെ പാർലമെന്റിന് മുന്നിലെ അംബേദ്ക്കർ പ്രതിമക്ക് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും പ്രതിപക്ഷ പാർട്ടികൾക്ക് പരിപാടിയുണ്ട് തെരഞ്ഞെടുപ്പിലൂടെ പ്രകടിപ്പിക്കുന്ന ജനങ്ങളുടെ ഇഷ്ടം ആ വർത്തിച്ച് അട്ടിമറിക്കപ്പെടുമ്പോൾ ജനാധിപത്യം ദുർബലമാക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ രാജ്യത്തിന്റെ ജീവൻ നശിപ്പിക്കുമെന്നും അദ്ദേഹം ഭരണഘടന ദിന സന്ദേശത്തിൽ വൃക്തമാക്കി വൈവിധ്യമാർന്ന ഇന്ത്യൻ സമൂഹത്തിൽ ഭൂരിപക്ഷ സാമുദായിക ആശയങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ മതേതരത്വം ഇല്ലാതാകുകയാണ് ഭരണഘടന സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്തം പൌരൻമാർ ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർഥിച്ചു രമൃ ഹരിദാസ് ഉൾപ്പെടെ വനിതാ എംപിമാരെ പുരുഷ വാച്ച് ആന്റ് വാർഡ് അംഗങ്ങൾ പാർലമെന്റിൽ കയ്യേറ്റം ചെയ്തത് ജനാ ധിപതൃത്തിനേറ്റ കളങ്കമാണെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഇന്ത്യൻ പാർലമെന്ററി ജനാധിപതൃത്തിന്റെ മഹത്വം ബിജെപി ഇല്ലാതാക്കിയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു

തെക്കൻ കശ്മീരിലെ ഷാദിമാർഗിലെ വാഹന ചെക്പോസ്റ്റിന് നേരെ ഭീകരർ വെടിയുതിർത്തതിനെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് റിപ്പോർട്ട്

പ്രധാനവേദിയിൽ നിയ മസഭാ സ്പീക്കർ പി

കലോ ത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ മന്ത്രി ഇ

രാവിലെ പൊതു വിദ്യാഭ്യാസിക്ക ഡയറക്ടർ കെ ജീവൻബാബു പതാക ഉയർത്തും

രജിസ്ട്രേഷൻ മുതൽ ഫ്രലപ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗും ഉൾപ്പെടെ മുഴുവൻ പ്രവർത്തനവും ഓൺലൈനാക്കി മുഴുവൻ വേദികളിലും വിവിധ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളുടെ മേൽനോട്ടത്തിൽ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ സൌകര്യം ഏർപ്പെ ടുത്തി ഹൈടെക് സൌകരൃം ഉപയോഗിച്ച് കലോത്സവം തത്സമയം സ്കൂളുകളിൽ കാണുന്നതിനും കൈറ്റ് അവസരമൊരുക്കുന്നുണ്ടെന്ന് കൈറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ അൻവർ സാദത്ത് തിരു വനന്തപുരത്ത് അറിയിച്ചു സ്കൂൾ കലോത്സവത്തിൽ ഡ്യൂട്ടിയ്ക്ക് നിയോഗിച്ച മുഴുവൻ ജീവ നക്കാരും വിധികർത്താക്കളും വിജിലൻസ് നിരീക്ഷണത്തിലായിരി ക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു സമൂഹമാധ്യമ ആപ്തിക്കേഷനായ ടെലഗ്രാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ പറുദീസയാണെന്ന് പൊലീസ് ഹൈക്കോടതിയെ അറിയിച്ചു കുട്ടികളുട നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതുൾപ്പെടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആപ്പിലൂടെ നടക്കുന്നുണ്ട് ആപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പൊലീസിന് പരിമിതികളുണ്ടെന്നും അനുമതി നൽകിയവർ തന്നെയാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതെന്നും സത്യവാങ്മൂലത്തിൽ പോലീസ് വൃക്തമാക്കി ടെലഗ്രാം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോഴിക്കോട് സ്വദേശി സമർപ്പിച്ച ഹർജിയിലാണ് പൊലീസ് സത്യവാങ്മൂലം സമർപ്പിച്ചത് ഐഎസ്എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ്സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ചെന്നൈയിൻ എഫ് സി പരാജയപ്പെടുത്തി

ഇന്ന് ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ഗോവ ജംഷഡ്പൂരിനെ നേരിടും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ടൂറിസം ഫിഷറീസ് കായികം തുടങ്ങിയ വകുപ്പുകളുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ബീച്ച് ഗെയിംസിന്റെ മലപ്പുറം ജില്ലാതല മത്സരം സമാപിച്ചു സമാപന സമ്മേളനം തിരൂർ പടിഞ്ഞാറെക്കര ബീച്ചിൽ മന്ത്രി കെ ടി ജലീൽ ഉദ്ഘാടനംചെയ്തു

കോഴിക്കോട് ഗവൺമെന്റ് ബേപ്പൂർ ഹയർസെക്കൻറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകായിരുന്നു മന്ത്രി എല്ലാ വിദ്യാർത്ഥികൾക്കും സൌജന്യ അപകട ഇൻഷുറൻസ് പരി രക്ഷ ഏർപ്പെടുത്തിയതായി മന്ത്രി ടി

തൃശൂർ നാട്ടിക താന്നൃത്ത് ഐടിഐ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി തൊഴിൽ സാധൃതകളുള്ള പുതിയ ട്രേഡുകൾ ആരംഭിക്കാൻ സാധ്യത ഗവൺമെന്റ് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖ ലയെ തകർക്കുന്ന പ്രചാരവേല അനുവദിക്കില്ലെന്ന് മന്ത്രി എ

മൊയ്തീൻ പറഞ്ഞു തൃശൂർ പഴഞ്ഞി ജിവിഎച്ച്എസ് സ്കൂളിൽ ശ്രേഷ്ഠ ബാലൃം പദ്ധതി നിർവഹണത്തിന്റെ ജില്ലാതല പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

കോർപ്പറേഷൻ പുതുതായി ആരംഭിച്ച ഉപജില്ല ഓഫീസിന്റെ ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി വൈദ്യുതോർജം ലാഭിക്കുകയെന്നത് അതിപ്രധാന മാണെന്ന് മന്ത്രി എം എം മണി പറഞ്ഞു ഇടുക്കി വെള്ളയാംകുടി സെന്റ് ജെറോംസ് യു

കൊല്ലം ജില്ലയിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ലഹരിമോചന കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കണമെന്ന് മന്ത്രി കെ

എക്സൈസ് വകുപ്പ് ലഹരി മോചനം ലക്ഷ്യമാക്കി വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയുടെ ജ ല ാ ത എക്സിക്യുട്ടിവ് യോഗത്തിൽ അധ്യക്ഷതവഹിക്കു കയായിരുന്നു അദ്ദേഹം ബലം പ്രയോഗിച്ചുള്ള മദ്യവർജ്ജനം നടപ്പാക്കലല്ല ഗവൺമെന്റ് നയമെന്നും ശരിയായ ബോധവൽക്കരണത്തിലൂടെ മദ്യാസക്തതിയിൽ നിന്ന് സമൂഹത്തെ വിമോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കട ന്ന പ്പള്ളി രാമ ച ന്ദ്രന്ദൻ പറഞ്ഞു

പാലക്കാട് ശ്രീകൃഷ്ണപുരം കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്മാരക അന്ധ വിദ്യാലയത്തിൽ നിർമിച്ച ആശയ രൂപീകരണ ക്ലാസ്സ് മുറി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അന്ധവിദ്യാലയങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു

മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡല മകരവിളക്ക് സമയങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്

ഗുരുതരമായി പരിക്കേറ്റ ആന്ധ്രാ സ്വദേശികളായ രണ്ടുപേരെയും തമിഴ്നാട് സ്വദേശിയെയും കോട്ടയം മെഡിക്കൽ കോളജ് ആശുപ ത്രിയിൽ പ്രവേശിപ്പിച്ചു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രനിർമ്മാണത്തിലിരുന്ന കാൻസർ സെന്ററിന്റെ ഒരുഭാഗം തകർന്നു വീണ് ആറു പേർക്ക് പരി ക്കേറ്റു

ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് രാഹുൽഗാന്ധി എംപി അടുത്തയാഴ്ച്ച വയനാട്ടിലെത്തും അഞ്ച് ആറ് ഏഴ് തീയതികളിൽ എംപി വയ്നാട്ടിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പാമ്പുകടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച പശ്ചാത്തലത്തിൽ മണ്ഡലത്തിലെ സ്കൂളുകളുടെ സ്ഥിതി വിലയിരുത്തും കോൺഗ്രസ് ബൂത്തു പ്രവർത്തകരുടെ യോഗത്തിലും എംപി സംബന്ധിക്കും ൾ ഗാന്ധിയൻ ആശയങ്ങളെ എങ്ങനെ സമ്പൂർണ്ണമാക്കാം എന്ന തിന്റെ തെളിവാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കുന്ന ജനോപ കാര പദ്ധതികളെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ

അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ബിജെപി സംസ്ഥാന സെക്രെട്ടറി വി

സജീവൻ നയിച്ച കോഴിക്കോട് സൌത്ത് മണ്ഡലം ഗാന്ധി സങ്ക ല്പയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സുൽത്താൻ ബത്തേരി സർവജന ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർഥിനി ഷെഹല ഷെറിൻ ക്ലാസ്മുറിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണ സംഘം വിദ്യാർഥികളുടെയും അധ്യാപകരുടെയും ആശുപത്രി അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തി

അതിനിടെ ഷഹലയുടെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകരെ പിരിച്ചുവിടണമെന്ന് ആവശൃപ്പെട്ട് വിദ്യാർഥികൾ പ്രതിഷേധം ശക്തമാക്കി ആരോഗൃമന്ത്രി കെ

ശൈലജയെ അപകീർത്തിപ്പെടുത്തി ഫെയ്സ്ബുക്കിൽ പോസ്റ്റിട്ട ബിജെപി പ്രവർത്തകൻ അറസ്റ്റിൽ താനൂർ കളരിപ്പടി സ്വദേശി മേച്ചേരി രഞ്ജിത്താണ് അറസ്റ്റിലായത് പ്രളയത്തെ തുടർന്ന് കോളനിവിട്ട കരുളായി പുലിമുണ്ടയിലെ ആദിവാസി കുടുംബങ്ങൾ നൂറ് ദിവസത്തിനുശേഷം കോളനിയിലേക്ക് മടങ്ങിയെത്തി ആഗസ്ത് എട്ടിന് ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലിലും വീടുകളിൽ വെള്ളംകയറിയതിനാൽ ഇവർ നെടുങ്കയം ദുരിതാശ്ചാസ ക്യാമ്പിലായിരുന്നു